കൂടുതൽ വിവരങ്ങളുമായി നൂര്യേന്ദ്ര മോഹൻ

വീടുകൾ പണിയുക എന്നത് മാത്രമല്ല രാജ്യത്തെ ദരിദ്രരെ ശാക്തീകരിക്കുക അവരിൽ ആത്മവിശ്വാസം വളർത്തുക എന്നിവ കൂടിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം മാത്രമല്ല ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാണ്

ഓരോ കുടുംബത്തിന്റെയും സന്തോഷം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു

ഭാഗവും രണ്ട് എൽ

പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓയിൽ എച്ച്

സി

ചടങ്ങിൽ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുക്കും

ഇന്നു നടക്കുന്ന വനിത സിംഗിൾസ് ഫൈനലിൽ ബലാറസിന്റെ വിക്ടോറിയ അസരങ്കയും ജപ്പാന്റെ നവോമി ഒസാക്കയും ഏറ്റുമുട്ടും തന്റെ ഇരുപത്തിനാലാമത് ഗ്രാൻഡ്സ്സാം കിരീടത്തിനായി ഇറങ്ങിയ സെറീന വില്യംസിനെ ആണ് സെമിയിൽ അസരങ്ക പരാജയപ്പെടുത്തിയത്

ദോഹയിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാൻ ചർച്ചകളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഖത്തർ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾറഹ്മാൻ ബിൻ ജാസിം അൽ താനി ക്ഷണിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം സമ്മേളനത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പങ്കെടുത്തത്

മ്യാൻമറിലെ രാഖിൻ മേഖലയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും യു എൻ സുരക്ഷാ സമിതി അംഗങ്ങൾ നിർദ്ദേശിച്ചു

യുവാക്കളെ കാണാതായതിനെ തുടർന്ന് ഇന്ത്യൻ സേന ഇവരെ കണ്ടെത്തി തിരികെ നൽകാൻ പിഎൽഎ യോട് ആവശ്യപ്പെട്ടിരുന്നു

തുടർന്ന് ഇവരെ കുടുംബാംഗങ്ങളോടൊപ്പം വിട്ടയക്കും

രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലയുടെ വളർച്ച ലീക്ഷ്യമിട്ടുള്ള ദീർഘകാല നിയന്ത്രണ മാർഗ്ഗരേഖയ്ക്കാണ് രൂപം പ്രിൽകുന്നത് രാജ്യത്തെ വാഹനങ്ങളിലെ സുരക്ഷ മലിനീകരണ്ട് ത്തോത് എന്നിവ മെച്ചപ്പെടുത്താനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ എല്പാത്തരം വാഹനങ്ങളിലും ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു

നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അ റൂട്ടിലേക്കുള്ള വിമാനത്തിന്റെ സർവീസ് രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും ഡിജിസിഎ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു